പദ്ധതിയുടെയും വിജയമെന്ന് പ്രധ്യാന്നമന്ത്രി നരേന്ദ്രമോദി

ബി ഐയുടെ വിശ്വാസൃത നിലനിർത്തേണ്ടത് പരമപ്രധാനമാണെന്നു കേന്ദ്ര മന്ത്രി അരുൺ ജെയ്റ്റ്ലി

പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിംൾസിൽ കിടംബി ശ്രീകാന്ത് പ്രീക്വാർട്ടർ ഫൈനലിൽ

രാജ്യത്തെ ഐ ടി ഇലക്ട്രോണിക് നിർമ്മാണ മേഖലയിലെ വിദഗ്ധരുമായും സുപ്രധാന്ദ് പൃാവസായിക നേതാക്കളുമായും ന്യൂഡൽഹിയിൽ ആശ്യ്യപ്പിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായും അവർക്ക് സമൂഹത്തിനുവേണ്ടി പ്രവർത്തിക്കാനും അനുകൂലമാറ്റം കൊണ്ടുവരാനും താല്പര്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ യുവജനത സാങ്കേതികവിദൃയുടെ ശക്തി അത്ഭുതകരമായി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരെ സാങ്കേതികമായി ശാക്തീകരിക്കുകയാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ സംസാരിക്കവെ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ചടങ്ങിൽ മേം നഹീം ഹും എന്ന വെബ്പോർട്ടലും ആപ്ലിക്കേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ പോർട്ടലിലൂടെ സാമൂഹൃസേവനത്തിനായി വിവരസാങ്കേതിക വിദഗ്ധർക്കും സ്ഥാപനങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും

അന്താരാഷ്ട്ര സഹ്ക്കരണം മെച്ചപ്പെടുത്തുക ആഗോള സാമ്പത്തിക വളർച്ച തൃമിത്പ്പെടുത്തുക ഇന്ത്യയുടെ വികസനത്തിനായി നല്കിയക്ക് സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം

മോദി സിദ്ധാന്തം ആക്ട് ഈസ്റ്റ് നയം എന്നിവയിലൂടെ മേഖലാപരമായും ആഗോളപരമായും കാത്തുസൂക്ഷിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെയും സമിതി അഭിനന്ദിച്ചു ദക്ഷിണ കൊറിയയുമായി വർദ്ധിച്ചുവരുന്ന ഇന്ത്യയുടെ സഹകരണത്തിന്റെ വെളിച്ചത്തിൽ അഭിമാനപൂർവ്വം ആദരത്തിന് നന്ദി അറിയിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു പുരസ്ക്കാരം പിന്നീട് സമ്മാനിക്കും

കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ മനേകാ ഗാന്ധി തുടങ്ങിയവർ അംഗങ്ങളാണ് ലൈംഗിക പീഢന സംഭവങ്ങൾ കൈകാരൃം ചെയ്യാൻ നിലവിലുള്ള നിയമം കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമിതി ശുപാർശ ചെയ്യും പീഢനങ്ങൾ സംബന്ധിച്ചുള്ള പ്രിർത്തികൾ സമർപ്പിക്കാൻ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാല്യും ്ഷീ ബോക്സ് എന്ന പേരിൽ ഇലക്ട്രോണിക് പരാതിപ്പെട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്

സുസ്ഥിര വികസന ലക്ഷൃങ്ങൾ കൈവരിക്കുന്നതിനും ലക്ഷൃങ്ങളുടെ സമയബന്ധിതമായ നിരീക്ഷണത്തിനുമായി ദേശീയ വികസന ചട്ടക്കൂട് പുനരവലോകനം ചെയ്ത് പരിഷ്ക്കരിക്കാനായി ഉന്നതതല നിർവ്വാഹക സമിതി രൂപീകരിക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകി

ബി ഐ രാജ്യത്തെ പരമോന്റിൽ അന്വേഷണ ഏജൻസിയാണെന്നും ഈ സ്ഥാപന്നത്തിന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് പരമപ്പ്രധാന്മാണെന്നു കേന്ദ്ര ഗവൺമെന്റ്

ബി ഐയ്യുടെ തലപ്പത്തുള്ള രണ്ട് ഉദ്യോഗസ്ഥർ കുറ്റാരോപിതരാകുന്നത് അസാധാരണമായ സംഭവമാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ബി ഐയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിനും നീതിയുക്തമായ പ്രവർത്തനത്തിനും രണ്ട് ഉദ്യോഗസ്ഥരും അവധിയിൽ പ്രവേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

ബി ഐയുടെ വിശ്വാസൃത പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷനും ഗവൺമെന്റും കൈക്കൊള്ളുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു

വെള്ളിയാഴ്ച വരെ പത്രിക പിൻവലിക്കാം

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയിസ് കാഴ്ചപരിമിതയുള്ള വ്യക്തികൾക്കായി ബ്രയിലി സംവിധാനങ്ങളുള്ള ഫോട്ടോ വോട്ടർ സ്ത്രീപ്പുകൾ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഇത്തരം വോട്ടർമാർക്ക് പോളിംഗ്പ് ബൂത്തിൽ പ്രവേശിക്കുന്നതിന് മുൻഗണ്ണിന് നൽകും തെരഞ്ഞെടുപ്പ് ദിവസം അംഗപരിമിതരായി വൃക്തികൾക്കായി എല്ലാ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേയ്ക്കും ഗതാഗത സംവിധാനം ഏർപ്പെടുത്തണമെന്നും കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ഇതിനുപുറമേ തെരഞ്ഞെടുപ്പ് ദിവസം പൊതു ഗതാഗത സംവിധാനങ്ങളിൽ എല്ലാ അംഗപരിമിതരായ വോട്ടർമാർക്കും സൌജന്യപാസ് ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട്

സേനക്ക് നേരെ തീവ്രവാദികൾ വെടിയുതിർത്തോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചു തെരച്ചിൽ അവസാനിച്ചതായും തീവ്രവാദികളെ തിരിച്ചറിഞ്ഞതായും ജമ്മുകാശ്മീർ പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘത്തിന്റെ സംസ്ഥാനത്തെ മൂന്നു ദിവസത്തെ സന്ദർശനത്തിന്റെ അവസാന ദിനത്തിൽ ഹൈദരാബാദിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മുംബൈ ഐ ഐ ടി സംഘടിപ്പിച്ച ഏഷ്യാ പെസഫിക് ഫെഡറേഷൻ ഫോർ ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ അഗ്രികൾച്ചറിന്റെയും വേൾഡ് കോൺഗ്രസ് ഓൺ കമ്പ്യൂട്ടർ ഇൻ അഗ്രികൾച്ചറിന്റെയും അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

കേന്ദ്ര ജലവിഭവ മന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതിയുടെ വിവിധ വശങ്ങൾ വിശദീകരിച്ചു പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഇതോടെ മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ടിലും വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി

ഇതുവരെ തോൽവിയറിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യയും മലേഷ്യയും സെമിഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്